വിമർശനം രാജ്യത്തെ നശിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി

ഗവൺമെൻ്റുകൾക്ക് തീരുമാനിക്കാട്ട്മ്ന്ന് കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി

എണ്ണത്തിൽ വൻ വർദ്ധനവ് വധാനമന്ത്രി കേന്ദ്രഗവൺമെന്റിന്റെ ഗോസംരക്ഷണ നയങ്ങൾക്കെതിരായ വിമർശനം രാജ്യത്തെ നശിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്നുകാലികളില്ലാത്ത ഒരു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനാകില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പാസിക് ഉക്കോബ്ർ രണ്ടു മുതൽ വീടുകളിൽ നിന്നും ഭാഗീസുകളിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു മാൾട്ടാപനി കുളമ്പുരോഗം തുടങ്ങിയവയിൽ നിന്ന് കന്നുകാലികളെ ്രക്ഷിക്കാൻ ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഉദ്ഘാടനം ഉത്തർപ്രദേശിലെ മഥുരയിൽ നിർവ്വഹിക്കുകയായിരുന്നു ശ്രീ

് ചടങ്ങിൽ കന്നുകാലികളിൽ നടപ്പിലാക്കുന്ന ദേശീയ കൃത്രിമ ബീജസങ്കലന പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു

ഗവൺമെന്റിനു പണ്ടക് ഉണ്ടാക്കലല്ല നിയമം കർശനമാക്കി അശ്രദ്ധമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ്ട്കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസ്ക്ക് ഒന്നാം തീയതി മുതലാണ് മോട്ടോർ വാഹന നിയമ ഭേദഗതി പ്രാബ്ലൃത്തിൽ വന്നത് മോട്ടോർ വാഹന നിയമം ഗ മോട്ടോർ വാഹന ഭേദഗതി ബിൽ അനുസരിച്ച് പുതുക്കിയ പിഴ കുറയ്ക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി എ

ശശീന്ദ്രൻ ഗതാഗത സെക്രട്ടറിക്ക് ് നിർദ്ദേശം നൽകി തിങ്കളാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമം നടപ്പാക്കിയതിന്റെ രീതിയും റിപ്പോർട്ടിൽ വിശദമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്

ഗുജറാത്ത് ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ പിഴ ഇൌടാക്കുന്ന കാര്യത്തിൽ ഇളവ് ് നൽകിയ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ നീക്കം ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ഉയർന്ന പിഴ തുക ഈടാക്കുന്നത് കേരളത്തിൽ വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു ബന്ധപ്പെട്ട് തീരദേശ പരിപാലന നിയമം ലംഘിച്ചതുമായി കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ കൊച്ചി മരടിലെ ഫ്ളാറ്റ് ഉടമകൾ തിരുവോണ ദിവസമായ ഇന്ന് നിരാഹാര സമരം നടത്തി മരട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിലാണ് നിരാഹാര സമരം നടത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ

ജെ

നേതാവും എം

എ യുമായ കുൽദീപ് സിംഗ് സെൻഗർ പ്രതിയായ ഉന്നാവ് പീഡ്ചന്ക്കേസിലെ പരാതിക്കാരിയുടെ മൊഴി പ്രത്യേക കോടതി ജഡ്ജി നേരിട്ടെത്തി രേഖപ്പെടുത്തി വാഹനാപകടത്തിൽ ഗുരുതരമായി പ്പൂരുക്കേറ്റ് ഡൽഹി എയിംസിൽ ചികിത്സയിൽ കഴിയുന്ന പ്പെൺകുട്ടിയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചാണ് പ്രത്യേക ക്കോടുതി ജഡ്ജി ധർമേഷ് ശർമ മൊഴി രേഖപ്പെടുത്തിയത്

വിനോദ സഞ്ചാരത്തിനെത്തിയ സംഘത്തിലെ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയെയാണ് കാണാതായത് മുക്കത്ത് നിന്നും എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ തുടരുന്നു

ഫയർഫോഴ്സും കോസ്റ്റ്കാർഡും തെരച്ചിൽ നടത്തുകയാണ്

വനം വന്യജീവി വകുപ്പ് ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ ചടങ്ങിൽ അഡീഷ്ക്രണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വി വി ഷർജിമോൻ രക്തസാക്ഷികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഗാർഡ് ഓഫ്ട്രിങ്ങണർ സ്വീകരിച്ചു വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സ്ഫ്ണ്ഡിച്ചു

ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പരാതിക്കാരൻ സമർപ്പിച്ച രേഖകൾ വിശ്വാസയോഗൃമല്ലെന്ന് കാട്ടി കോടതി കേസ് തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് തുഷാർ നിയമ നടപടിക്കൊരുങ്ങുന്നത്

ഇന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും കഴിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഗൃഹസന്ദർശനങ്ങളിലും ആഘോഷപരിപടികളിലും സജീവമായി പങ്കുചേരുകയാണിപ്പോൾ

ഉരൂൾപൊട്ടലും പെരുമഴയും തീർത്ത ദുരന്തങ്ങളെ ഒരു മഴയോടെ മറികടന്ന കരുത്തിലാണ് ഓണാഘോഷങ്ങൾ നടക്കുന്നത്

തലസ്ഥാന ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ക്യാറ്റ്സ്കാരിക തനിമ പകരുന്ന കലാരൂപങ്ങൾ ഇന്നലെ മുതൽ നിറഞ്ഞാടൂകയാണ്

ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്ക് ദൃശ്യമാണ്

മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ്

മുഖ്യമന്ത്രിക്കു പുറമെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രിമാർ എൽ ഡി എഫ് ഘടകകക്ഷി നേതാക്കൾ എന്നിവരും വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന്റെ പ്രചരണത്തിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എ ഐ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻ ചാണ്ടി തുടങ്ങിയ മുൻനിര നേതാക്കളാണ് പങ്കെടുക്കുക എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഹരിയുടെ തിരഞ്ഞെടുപ്പുയോഗങ്ങളിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എ എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് കെ സുരേന്ദ്രൻ ശോഭാ സൂരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള മണ്ഡലത്തിലെത്തി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും പാലാ തോമസ് ഐസക് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വിജയം പാല സുനിശ്ചിതമാണെന്ന് ധനമന്ത്രി ഡോ

പാലായിലും നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും മുന്ത്രി പറഞ്ഞു മാരാരിക്കുളത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയ്കായിരുന്നു അദ്ദേഹം

എസ് സി പിരിച്ചുവിടണമെന്ന് ചലച്ചിത്ര സംവിധായകൻ അടാർ ഗോപാലകൃഷ്ണൻ മലയാളത്തിൽ പരീക്ഷ നടത്തുന്നത് സുരക്ഷിതമല്ലെന്ന വാദം യുക്തി രഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു

എസ്

അതേസമയം സമരത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച പി എസ് സി അധികൃതരുമായി ചർച്ച നടത്തും തേക്കടി തേക്കടിയിലെ ആനവച്ചാൽ വാഹന പാർക്കിംഗ് ഗ്രൌണ്ടിൽ കുമളിയിലെ ടാക്സി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ അനുമതി നിഷേധിച്ച വനം വകുപ്പ് നടപടിക്കെതിരെ ആരംഭിച്ച സമരം തിരുവോണനാളിലും തുടർന്നു കോൺഗ്രസ്സ് സി പി എം സി പി ഐ കക്ഷികളിലെ പ്രമുഖ നേതാക്കൾ തിരുവോണ ദിവസവും ഉപവസിച്ചാണ് വനം വകുപ്പിനെതിരായ സമരം ശക്തമാക്കിയത്